എല്പാവരേയും സമഗ്രവികസനമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പദ്ധതികളുടെ ഗ്മൂണഭോക്താക്കളുമായി ജയ്പൂരിൽ പ്രധാനമന്ത്രി ് ആശയവിനിമയം നടത്തി

ഇ ഇ നീറ്റ് പ്രവേശന പരീക്ഷകൾ ഇനി വർഷത്തിൽ രണ്ടു തവണ നടത്തും പരീക്ഷ നടത്തിപ്പ് ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക്

വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി രാജസ്ഥാനിലെ ജയ്പൂരിൽ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം

വികസനം രാജൃത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ച് ഓരോ പൌരന്റേയും ജീവിതം എളുപ്പവും സുരക്ഷിതവും ആക്കാനുള്ള യജ്ഞത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് അഴിമതിക്കെതിരായി യുദ്ധം തുടരും പുതിയ ഇന്തൃ കെട്ടിപടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ അഞ്ചു കോടി ജനങ്ങളെ ദാരിദ്രത്തിന്റെ പിടിയിൽ നിന്ന മോചിപ്പിക്കാൻ കഴിഞ്ഞതായി അടുത്തിടെ പുറത്തു വന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇപ്പോഴും സാർവത്രികമായിട്ടില്ല സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസം അപ്രാപൃമാകുന്ന സ്ഥിതി ഉണ്ടാവരുത് വിശാലമായ ലോകത്തെ അറിയാനും തൂറ്റന്റുമനസ്സോടെ ചിന്തിക്കാനും വിദ്യാഭ്യാസം മനുഷ്യർക്ക് സ്ജ്ജരാക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൃാപാര സാമ്പത്തിക സഹകരണം സംബന്ധിച്ച കാര്യങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ എത്തിയത് മേഖല അന്തർ ദേശീയ വിഷയങ്ങളെ സംബന്ധിച്ച് ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച നടത്തി

ഇ ഇ നീറ്റ് പ്രവേശന പരീക്ഷകൾ ഇനി വർഷത്തിൽ രണ്ടു തവണ നടത്തും രണ്ടു പരീക്ഷകളിൽ നിന്നും മികച്ച മാർക്കാവും പ്രവേശനത്തിനായി പരിഗണിക്കുക

കേന്ദ്ര മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

എന്നാൽ സിലബസിനും ചോദ്യപേപ്പറിന്റെ മാതൃകയ്ക്കും പരീക്ഷ ഫീസിനും മാറ്റമുണ്ടാവില്ലെന്ന് മന്ത്രി അറിയിച്ചു നീറ്റ് പരീക്ഷ ഫെബ്രുവരി മെയ് മാസങ്ങളിലും ജെ ഇ മെയിൻ ജനുവരി ഏപ്രിൽ മാസങ്ങളിലായിരിക്കും നടക്കുക

വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്നോ അംഗീകൃത കമ്പ്യൂട്ടർ കേന്ദ്രങ്ങളിൽ ഇരുന്നോ പരീക്ഷകൾക്കായി സൌജന്യ പരിശീലനം നേടാം

അതേസമയം ജെ ഇ ഇ അഡ്വാൻസ് പരീക്ഷ ഐ ഐ ടി കളുടെ കീഴിലായിരിക്കുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു

ജെ പി ഗവൺമെന്റ് രൂപീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവ് നിഷേധിച്ചു

പി ഡി പിയിലെ നല്ലൊരു വിഭാഗം എള് എൽ ്എമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാനത്ത് ഭരണം ക്കെയടക്കാൻ ശ്രമിക്കുകയാണെന്ന മുൻമുഖ്യമന്ത്രിയും നാഷണ്ണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ളയുടെ ആരോപ്പിണ്ണത്തിന് പിന്നാലെയാണ് ശ്രീ രാം മാധവിന്റെ പ്രതികരണം

ഹൈദർപ്പോറയ്ക്ക് സമീപം ഫ്ളൈഓവറിൽ സി ആർ

എഫ് സംഘ്ചിത്തിനു നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയായിരുന്നു

കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ബാരാമുള്ള ജില്ലയിലായിരുന്നു സംഭവം നാല് ലഷ്കർ ഈ തൊയ്ബ ഭീകരർക്കെതിരെയാണ് ബാരാമുള്ള സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്

നിയമവശങ്ങൾ അനുകൂലമെങ്കിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തിയുള്ളതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു

വീഡിയോ ഗെയിമുകൾ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടെലിവിഷൻ തുടങ്ങിയവുടെ ഉപയോഗം കുട്ടികളിൽ ഹ്രസ്വ ദൃഷ്ടി വ്യാപകമാക്കാൻ കാരണമാകുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു

അമേരിക്കയിലെ ബാൾട്ടിമോർ മെറിലാന്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ ഹ്യൂമൺ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുരസ്ക്കാരം നൽകിയത്

രാജ് ഭവനിൽ നടന്ന ചടങ്ങിൽ തെലുങ്കാനാ ആന്ധ്രാപ്രദേശ് ഗവർണർ ഇ എസ്

ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റനിരയും സ്വീഡന്റേയും പ്രതിരോധനിരയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും മൈതാനത്ത് കാണാനാകുക

ഹാരി കെയ്യ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലണ്ട് ടീമിന്റെ പ്രധാന ആയുധം ആക്രമണ്നത്തിലൂന്നിയ മുന്നേറ്റമാണ് ഹോളണ്ടിനെയും ഇറ്റലിയെയും മറി കടന്ന് കാർട്ടറിൽ എത്തിയ സ്വീഡൻ ഏതു വെല്ലുവിളികളേയും നേരിടാൻ സജ്ജരാണ് മികച്ച പ്രതിരോധം കളികളിലൂടനീളം കാഴ്ചവയ്ക്കുന്ന സ്വീഡൻ ഇംഗ്ലണ്ടിന് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ രണ്ടാമത്തെ മത്സരത്തിൽ സ്വന്തം രാജ്യത്ത് ആരാധകരുടെ പിന്തുണയാണ് റഷ്യൻ ടീമിന് പിൻബലം നൽകുന്നത്

ടീമുകളുടെ പ്രകടനത്തിന് റാങ്കിങ് മാനദണ്ഡമാകില്ലെന്ന് പ്രബല ടീമുകളുടെ മുൻ മത്സരങ്ങൾ തെളിയിക്കുന്നു ഗ്രൂപ്പ് മത്സരത്തിൽ അർജ്ജന്റീനയെ പരാജയപ്പെടൂത്തിയ ക്രൊയേഷ്യയും പ്രീകാർട്ടറിൽ സ്പെയിനിനെ അട്ടിമറിച്ച റഷ്യയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ വിജയം പ്രവചിക്കുക അസാധ്യമാണ് ഇന്നലെ നടന്ന കാർട്ടറിലെ ആദ്യമത്സരങ്ങളിൽ ബ്രസീലിനെ തകർത്ത് ബെൽജിയവും ഉറുഗ്വായെ വീഴ്ത്തി ഫ്രാൻസും സെമിയിൽ കടന്നു

രാജ്യത്തിന്റെ ശാസ്ത്ര വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി